സംസ്ഥാനത്തെ ഐടിഐ കളിൽ തൊഴിലസരവുമായി ബന്ധപ്പെട്ട് സ്പെക്ട്രം ജോബ് ഐയർ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ ശബരിമലയിൽ മണ്ഡലകാല ഉത്സ്വത്തിന് ഇന്ന് സമാപനം ദേശീയ ജൂനിയർ സബ്ജൂനിയർ ബധിരകായികമേള വൈകിട്ട് കോഴിക്കോട്ട് ആരംഭിക്കും ഐഎസ് എൽ ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ജംഷഡ്പൂർ പോരാട്ടം

മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു

തിങ്കളാഴ്ച വൈകീട്ട് ഉപരാഷ്ട്രപതി വെങ്ക യ്യനാഡിഡു ബാലശാസ്ത്രജ്ഞരെ അഭിസംബോധന ചെയ്യും കുട്ടികളിൽ ശാസ്ത്രാഭിരുചി പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന് ആദ്യമായാണ് കേരളം വേദിയാ കുന്നത് വൃത്തിയും പച്ചപ്പും ആരോഗ്യവുമുള്ള ഒരു രാഷ്ട്രത്തി നായി ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും നവീന ആശയങ്ങളും എന്നതാണ് ശാസ്ത്ര കോൺഗ്രസിന്റെ പ്രമേയം

ചൊവ്വാഴ്ച സമാപിക്കും എൺപതാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് നാളെ കണ്ണൂരിൽ തുടക്കമാവും

ചരിത്ര കോൺഗ്രസിന്റെ ഔപചാരിക ഉദ്ഘാടനം നാളെ രാവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ്ദ് ഖാൻ നിർവഹിക്കും നിയുക്ത അധ്യക്ഷൻ പ്രൊഫ

ഇർഫാൻ ഹബീബിൽ നിന്ന് സ്ഥാനം ഏറ്റെടുക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യപ്രിഭാഷണം നടത്തും ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പ്രാചീന ഇന്ത്യ മധ്യകാല ഇന്ത്യ ആധുനിക ഇന്ത്യ സ്മകാലിക ഇന്ത്യ പുരാവസ്തു വിജ്ഞാനീയം ഇന്ത്യയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങൾ എന്നിങ്ങനെ ആറ് സെഷനുക്ളിലായി പ്രബന്ധാവതരണങ്ങൾ ഉണ്ടാകും പ്രശസ്ത പത്രപ്രവർത്ത് കൻ എൻ റാം പ്രൊഫ

സി മിശ്ര സ്മാരക പ്രിപ്പഭാഷണം നടത്തും

ഉച്ചയ്ക്ക് ചേരുന്ന ജനറൽ ബോഡി യോഗത്തിന് ശേഷം ചരിത്രകോൺഗ്രസ് സമാപിക്കും ഫോക് ലോർ അക്കാഡമിയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഉണ്ടാവും ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻറെ മീഡിയാ സെൻറർ സർവകലാശാല ആസ്ഥാനത്ത് ടി വി രാജേഷ് എം

എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ഐ ടി ഐകളിൽ തൊഴിലവസരവുമായി ബന്ധപ്പെട്ട് സ്പെക്ട്രം ജോബ് ഫെയർ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ കോഴിക്കോട്ട് പ്രസ്താവനയിൽ അറിയിച്ചു

നിര വധി സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജോബ് ഫെയറിൽ പങ്കാളികളാകും കഴിഞ്ഞ രണ്ടുവർഷത്തെ ജോബ് ഫെയറിലൂടെ ഏഴായിരത്തി ലധികം പേർക്ക് തൊഴിൽ ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു പൌരത്വത്തിന്റെ അടിസ്ഥാനം മതമാക്കിമാറ്റുന്ന ഗുരുതര സാഹ ചര്യമാണ് രാജ്യത്തുണ്ടായിരിക്കുന്നതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു ഒരു ധാരണ യുമില്ലാതെ ഏതാനും വർഷങ്ങളായുള്ള അജിണ്ട ന്ടപ്പിലാക്കുക യായിരുന്നു മോദിയും അമിത്ഷായുമെന്നൂം അദ്ദേഹം പറഞ്ഞു തിരു വനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായി രുന്നു അദ്ദേഹം പൌരത്വ നിയമഭേദഗതിയുമായി ബ്ന്ധപ്പെട്ട് പ്രതിപക്ഷം നട ത്തുന്ന വിദ്ധേഷ പ്രചാരണത്തിനെതിരെ അടുത്തമാസം മൂന്ന് മുതൽ പത്ത് വരെ ഗൃഹസമ്പർക്ക് പ്രിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബിജെപി നേതാക്കൾ ക്യോഴിക്കോട്ട് അറിയിച്ചു വിവിധ മോർച്ചക ളുടെയും സെല്ലുകളുടെയും ഭാരവാഹികളാണ് ഗൃഹസമ്പർക്കത്തിന് നേതൃത്വം നൽകുക ചൊവ്വാഴ്ച് മുതിലക്കുളത്ത് നടക്കുന്ന മഹാറാലിയിൽ പാർട്ടി നേതാക്കളായി ഒ രാജഗോപാൽ എ പി അബ്ദുളളക്കുട്ടി തുടങ്ങിയ വർ പങ്കെടുക്കും പൌരത്വ നിയമഭേദഗതിക്കെതിരെ കോൺഗ്രസ് ജന്മദിനമായ നാളെ കെപിസിസിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് പ്രതിഷേ ധസംഗമവും റാലിയും സംഘടിപ്പിക്കുമെന്ന് വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് എം പി തിരുവനന്തപുരത്ത് അറിയിച്ചു മുൻകേന്ദ്രമന്ത്രി പി ചിദംബരം പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യും പാളയം രക്തസാക്ഷി മണ്ഡപത്തിലെ പുഷ്പാർച്ചനക്ക് ശേഷം പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നി ത്തല എഐസിസി ജന

പാർട്ടി പറഞ്ഞാൽ മന്ത്രിയാകാൻ തയ്യാറാണെന്ന് എൻസിപി നേതാവ് മാണി സി കാപ്പൻ മുംബൈയിൽ പറഞ്ഞു എന്നാൽ പാർട്ടി അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്നും ശ്രത് പവാറുമായി കൂടിക്കാഴ്ചക്കെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് പറ്ഞ്ഞു

രാത്രി പത്തിന് ഹരിവരാസനും പൂടി നട അടയ്ക്കും മകരവി ളക്ക് ഉത്സവത്തിനായി തിങ്കളാഴ്ച വീണ്ടും തുറക്കും

ശബരിമല്യിൽ ദർശനത്തിനെത്തിയ ട്രാൻസ്ജെൻഡേഴ്സിനെ പൊലീസ് തടഞ്ഞതായി പരാതി തിരിച്ചറിയൽ രേഖ പരിശോധി ക്കുന്നതിനാണ് ഇവരെ തടഞ്ഞതെന്ന് പൊലീസ് വ്യക്തമാക്കി രേഖ കൾ പരിശോധിച്ച് പിന്നീട് ദർശനത്തിന് പോകാൻ അനുവദിച്ച തായും പൊലീസ് പറഞ്ഞു

മരടിൽ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിനിടയിൽ വിള്ളലുണ്ടായ അഞ്ച് വീടുകളുടെ പരിശോധനാ റിപ്പോർട്ട് ഇന്ന് സബ്ബ് കലക്ടർക്ക് കൈമാറും

അതിനിടെ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന്റെ മുന്നൊരുക്കങ്ങ ളിൽ കേന്ദ്ര എക്സ്പ്ലോസീവ് വിഭാഗം അതൃപ്തി അറിയിച്ചു ആഘാതം പരമാവധി കുറയ്ക്കുന്ന ക്രമീകര്ണം ഏർപ്പെടുത്തണ മെന്ന് കേന്ദ്ര എക്സ്പ്ലോസീവ് ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ ആവ ശ്യപ്പെട്ടു

മെഡിക്കൽ കോളെജ് സ്റ്റേഡിയത്തിൽ എ പ്രദീപ്കുമാർ എം എൽ എ മേള ഉദ്ഘാടനം ചെയ്യും മത്സരങ്ങൾ നാളെ വിവിധ പ്പേദ്ദികളിൽ ആരംഭിക്കും

എൽ ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ജംഷഡ്പൂർ എഫ് സിയുമായി ഏറ്റുമുട്ടും

ഇന്നലെ ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് ഗോവ എഫ് സി ചെന്നൈയിൻ എഫ് സിയെ തോൽപ്പിച്ചു

രണ്ടാമത്തെ മത്സരം നാളെയാണ് സംസ്ഥാനത്തിന്റെ വികസനനയം രൂപീകരിക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ചീഫ് മിന്നിസ്റ്റേഴ്സ് സ്റ്റുഡന്റ് ലീഡേഴ്സ് കോൺക്ലേവ് അടുത്തമാസം ആറിന് ്കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ നടക്കും മുഖ്യമൂന്തി പിണറായി വിജയൻ വിദ്യാർഥി യൂണിയൻ പ്രതിനിധിക്കളുമായി ആശയവിനിമയം നടത്തും കണ്ണൂർ കോഴിക്കോട് ്കാർഷിക വെറ്ററിനറി മലയാളം സംസ്കൃതം കേരള കലാമണ്ഡ്ലം സർവകലാശാലകളിലെ യൂണിയൻ പ്രതിനിധികളും അവയുടെ കീഴിലെ സ്വാശ്രയ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ അഫിലിയേറ്റഡ് കോളേജു കളിലേയും യൂണിയൻ ചെയർമാൻമാരും ജനറൽ സെക്രട്ടറി മാരും പങ്കെടുക്കും ഭാഷയും സംസ്കാരവും കലാവിരുതും രുചിയും സമ്മേളിക്കുന്ന കണ്ണൂർ സ്രസ്മേളയിൽ ഏറെ ശ്രദ്ധേയമാവുകയാണ് പശ്ചിമ ബംഗാളിന്റെ ് കരകൌശല സ്റ്റാളുകൾ ചണം കൊണ്ടുണ്ടാക്കിയ വിവിധ ഉല്പന്നങ്ങളും ആഭരണങ്ങളും തുണിത്തരങ്ങളുമായാണ് മിട്ടു കാനാറും സർതഘോഷും മേളയിലെത്തിയത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കരകൌശല മേളകളിൽ പങ്കെടുക്കുന്ന ഇവർ കേരളത്തിൽ എത്തുന്നത് ആദ്യമായാണ്

കണ്ണൂർ ഗവ എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനിയിൽ നടക്കുന്ന സരസ് മേള ചൊവ്വാഴ്ച സമാപിക്കും

ഹാൻസ് കടത്തിയ കോഴിക്കോട് പടനിലം ആരാമ്പ്രം പൂളക്കമണ്ണിൽ മുഹമ്മദ് ഷിക്കിൽ കുറ്റിയോയത്തിൽ മുഹമ്മദ് റഹീസ്

രാജ്യത്ത് ഇന്ധനവിലയിൽ നേരിയ വർധന

സിവിൽ ഡിഫൻസ് ഫോഴ്സ് രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിലെ സന്നദ്ധ പ്രവർത്തകർക്കായി ബീച്ച് ഫയർസ്റ്റേഷനിൽ പ്രിശീലനം തുടങ്ങി

ഇവർക്ക് ജനുവരിയിൽ ജില്ലാതല പരിശ്രീലനം നല്കും നഗരത്തിലെ നടക്കാവ് വെസ്റ്റ് ഹിൽ ബീച്ച് തുടങ്ങി ആറിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ സേവനം ലഭ്യമാക്കുക